ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു

നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ജനങ്ങൾ നിരത്തിലിറങ്ങുന്നത് വർദ്ധിച്ചു സാഹചരൃത്തിലും രോഗവൃാപനം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലുമാണ് നടപടി

എസ് ആർ ടി സി സർവീസ് നടത്തില്ല സംസ്ഥാനത്തെ രോഗസ്ഥിതി പരിഗണിച്ച് ഒരാഴ്ചയെങ്കിലും സമ്പൂർണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെന്ന് ഐ

സ്വകാരൃ ആശുപത്രികളിലെ കൊവിഡ് ചികിത്സാ നിരക്കുകൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാരൃം അറിയിച്ചത്

സ്വകാര്യ ആശുപത്രികളുമായുള്ള ചർച്ചകളുടെ വിവരങ്ങൾ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പൂട്ടിക്കിടക്കുന്ന ആശുപത്രികൾ ഏറ്റെടുക്കുന്നു സർക്കാർ പരിഗണിക്കണമെന്നും കോടതിക് ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി അക്ഷയ് ഷാജി

രോഗവ്യാപനത്തിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ

കോഴിക്കോട് മലപ്പുറം തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ രോഗവ്യാപനം ഇതര ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണ്

തിരുവനന്തപുരത്ത് കളക്ടറേറ്റിൽ ജില്ലാതല ഓക്സിജൻ വാർ റൂം പ്രവർത്തനമാരംഭിച്ചു

വിവിധ വകുപ്പുകളുടെ മേൽനോട്ടിത്തിൽ മൂന്ന് ഷിഫ്റ്റുകളായാണ് വാർ റൂം പ്രവർത്തിക്കുക്ക് കോവിഡ് വ്യാപനം രണ്ടാമതും രൂക്ഷമായ സാഹചരു്ത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒ പി വിഭാഗം വീണ്ടും പ്രവർത്തനമാരംഭിച്ചു അതേസമയം ഏറ്റവും കുറവ് രോഗികളുള്ള വയനാട് ജില്ലയിൽ ഓക്സിജൻ സിലിണ്ടറുകൾക്കും നിലവിൽ ക്ഷാമമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും രോഗ വ്യാപനം കൂടുകയാണ്

ആകാശവാണി മുഖ്യമന്തി കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്ഥിതി ഗുരുതരമായ സാഹചര്യത്തിൽ പഠനം കഴിഞ്ഞ മെഡിക്കൽ വിദ്യാർഥികളെ താത്കാലിക രജിസ്ട്രേഷൻ നൽകി കൊവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുമെന്ന് മുഖ്യമന്ത്രി രോഗസ്ഥിതി കൂടുന്ന സാഹചര്യത്തിൽ സി എഫ് എൽ ടി സികളുടെ പ്രവർത്തനത്തിനായി ഹോസ്റ്റലുകളും ലോഡ്ജുകളും ഏറ്റെടുക്കും

ഐ

വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ പകർച്ചവ്യാധി നിയമപ്രകാരമാണ് പൊലീസ് കേസെടുത്തത്

തിരുവല്ല അലക്സാണ്ടർ മാർത്തോമ്മാ സ്മാരക ഹാളിലെ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായിക്ക് വീജയൻ അന്ത്യോപചാരം അർപ്പിച്ചു സമൂഹത്തിനാകെ മാത്യുകയാകുന്ന വൃക്തിത്വത്തിന് ഉടമയായിരുന്നു അന്തരിച്ച മാർത്തോമ്മാ സഭാ വലിയ മെത്രാപ്പൊലിത്ത ഡോ

വൈകിട്ട് മൂന്നിന് നടക്കുന്ന നാലാം കബറടക്ക ശ്രുശ്രൂഷകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതിയോടെ കബറടക്കം തിരുവല്ല സഭാ ആസ്ഥാനത്ത് സെന്റ് തോമസ് മാർത്തോമാ പള്ളിക്ക് സമീപം പ്രത്യേകം തയാറാക്കിയ കല്ലറയിൽ നടക്കും ചടങ്ങുകൾക്ക് ഡോ

തിരുവന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരം നടത്താൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ശാന്തികവാടത്തിൽ മൃതദേഹം സംസ്ക്കരിക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു

പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിലും കോഴിക്കോട് ശ്മശാനത്തിലും എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്

ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലും വലിയതുറ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും കോവാക്സിനും മറ്റുള്ള സ്ഥാപനങ്ങളിൽ കോവീഷീൽഡ് വാക്സിനും നൽകും

സ്വകാര്യ ആശുപത്രിയിൽ ആദ്യ ഡോസ് എടുത്തവർ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നും രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടതാണ്

ഗൌരിയമ്മ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻമന്ത്രി കെ ആർ ഗൌരിയമ്മയുടെ ആരോഗൃനില വീണ്ടും ഗുരുതരമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി